സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗവൺമെന്റ് കണ്ടെത്തണമെന്ന് കോൺഗ്രസ്

തോമസ് ഐസക്

വളർച്ചയിൽ കുറവ് വന്നിട്ടുണ്ടാകാമെങ്കിലും സമ്പദ് വൃവസ്ഥ ഒരിക്കലും മാന്ദൃത്തിലേക്ക് പോകില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു രാജ്യസഭയിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സംബന്ധിച്ച ഹ്രസ്വ ചർച്ചക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി ബജറ്റിന് ശേഷം ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ ഫലം കണ്ട് തുടങ്ങിയെന്നും ഓട്ടോമൊബൈൽസ് ഉൾപ്പെടെ ചില മേഖലകൾ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും അവർ പറഞ്ഞു ബജറ്റ് പ്രസംഗത്തിലെ ഭാഗങ്ങൾ ധനമന്ത്രി സഭയിൽ വായിക്കു കയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഇടത് പാർട്ടി അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സാമ്പത്തിക രംഗത്തെ യഥാർത്ഥ വസ്തുതകൾ കണക്കിലെ ടുത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മോദി ഗവൺമെന്റ് ഉണരേണ്ട സമയമായെന്നും ഗവൺമെന്റ് ഗ്രാമീണ മേഖലയെ പാതാളത്തിലേക്ക് നയിക്കുകയാ ണെന്നും പാർട്ടി വക്താവ് രാജീവ് ഗൌഡ ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യസഭയിൽ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വിപുലമായ ചർച്ച നട ന്നെങ്കിലും ഗവൺമെന്റിന് കാര്യമായൊന്നും പറയാനുണ്ടായിരുന്നി ല്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എസ്പിജി ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ഗാന്ധി കുടും ബത്തിന്റെ സുരക്ഷ പിൻവലിച്ചിട്ടില്ലെന്നും മാറ്റം വരുത്തുക മാത്ര മാണ് ചെയ്തതെന്നും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ ആഭ്യന്തര മന്ത്രി അമിത് ഷാ വ്യക്തമാക്കി സോണിയാ ഗാന്ധിക്കും രാഹുൽ പ്രിയങ്ക തുടങ്ങിയവർക്കും എസ്പിജി സുർക്ഷ പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നാഗർഹവേലിയേയും ഡാമൻഡ്യുവിനേയും ഒറ്റ കേന്ദ്ര ഭരണ പ്രദേശമാക്കുന്ന ബില്ലിനും ലോക്സഭ അംഗീകാരം നൽകി

പ്രേ മചന്ദ്രനെ അറിയിച്ചു

മയക്കുമരുന്നുകളുടേയും ലഹരി പദാർത്ഥങ്ങളുടേയും കള്ളക്ക ടത്ത് തടയാൻ ഇന്ത്യയും സൌദി അറേബ്യയും ഒപ്പുവെച്ച ധാരണാ പത്രത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി സാമ്പത്തികൃ പ്രതിസന്ധിയുണ്ടെങ്കിലും തദ്ദേശസ്ഥയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തില്ലെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് വൃക്തമാക്കി ദേശീയ സംസ്ഥാന പുരസ്കാര ങ്ങൾ നേടിയ തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിക്കുന്നതിന് തിരുവനന്ത പുരത്ത് സംഘടിപ്പിച്ച മികവിന്റെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം

ഈ വേനൽക്കാലത്ത് പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു തടസവുമില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു

നിലവിൽ മൊത്തം വായ്പയുടെ പത്തര ശത മാനമാണ് കാർഷിക വായ്പയായി സഹകരണ സംഘങ്ങളിലൂടെ നൽകുന്നത്

കാർഷിക മേഖലയിൽ സഹകരണ ബാങ്കുകളുടെ ഇടപെടൽ സാധ്യതകൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഹരിത കേരള മിഷൻ സംഘടിപ്പിച്ച ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന എൻസിപി കോൺഗ്രസ് സഖ്യ മന്ത്രിസഭ ഇന്ന് വൈകീട്ട് അധി കാരമേൽക്കും

സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ഉദ്ധവ് താക്കറെ ക്ഷണിച്ചു ശിവസേനാ നേതാവ് ആദിത്യ താക്കറെ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി യെയും മുൻ പ്രധാനമന്ത്രി ഡോ

നിയമസഭാ സ്പീക്കർ പദവി കോൺഗ്രസിനും ഡപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എൻസിപിക്കും ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്ന് പാർട്ടികളിലേയും ഒന്നോ രണ്ടോ അംഗങ്ങൾ വീതം ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു

മഹാകവി പി

ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാ ടനം ചെയ്യും ചലച്ചിത്രതാരം ജയസൂര്യ മുഖ്യാതിഥിയാകും മന്ത്രി മാരായ സി രവീന്ദ്രനാഥ് ഇ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെ ടുക്കും രാവിലെ എട്ടിന് മുഖ്യവേദിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു കലോത്സവത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തും

വിധികർത്താക്കളെ വിജിലൻസ് നിരീക്ഷിക്കും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യർത്ഥികൾക്കും ട്രോഫി നൽകും എന്നതാണ് ഇത്തവ ണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകത എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ആയിരം രൂപ കൃാഷ് അവാർഡ് നൽകും ഊട്ടുപൂര ഇന്നലെ രാത്രി പ്രവർത്തിച്ചു തുടങ്ങി ഇരുപത്തി എണ്ണാ യിരത്തോളം പേർക്കാണ് ഭക്ഷണം കലോത്സവം പ്രമാണിച്ച് രാജധാനി എക്സ്പ്രസ് ഒഴികെ എല്ലാ ട്രെയിനുകൾക്കും കാസർകോട് റെയിൽവെസ്റ്റേഷനിൽ സ്റ്റോപ് അനു വദിച്ചിട്ടുണ്ട് കലോത്സവം ഞായറാഴ്ച്ച സമാപിക്കും ഇന്ന് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയ്ക്കും നാളെ കാസർകോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരി ക്കും

കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു ഇനിയുള്ള ദിവസങ്ങൾ കാഞ്ഞങ്ങാട് നഗരവും പരിസര പ്രദേശങ്ങളും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു

ജപ്പാനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടി ക്കാഴ്ച്ചയിലാണ് ഷിമാനെ സർവ്വകലാശാല ഈ തീരുമാനം എടുത്ത ത് കുസാറ്റുമായി ചേർന്ന് സംരംഭകത്തിലും ഇന്നൊവേഷനിലും കേരളത്തിലും ജപ്പാനിലും ആറ് മാസം വീതം ഒരു വർഷത്തെ ബിരു ദാനന്തര സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതിനും സർവ്വകലാ ശാല സജ്ജീകരണമൊരുക്കും തീരുമാനം സംസ്ഥാനത്തെ സർവ്വകലാശാലകളും അന്താരാഷ്ട്ര സർവ്വകലാശാലകളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഡമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുസാറ്റുമായുള്ള സഹകരണം കേരളത്തിലെ മറ്റ് സർവ്വകലാശാലകളിലേക്കും വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ണ്ടെന്ന് ഷിമാനെ സർവ്വകലാശാലയും വൃക്തമാക്കി

മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട നിർമ്മാണ ഏജൻസികൾക്ക് കോവളം ആനിമേഷൻ സെന്ററിൽ ബോട്ട് നിർമ്മാണ ഉത്തരവ് കൈമാറുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കു കയായിരുന്നു മന്ത്രി

മണിയുടെ സാന്നിധൃത്തിൽ ഇന്ന് ഒപ്പുവെക്കും അനർട് സംഘടിപ്പിക്കുന്ന പാരമ്പര്യേതര ഊർജ്ജവ്യവസായങ്ങളുടേയും സാങ്കേതിക വിദഗ്ധരുടേയും ശിൽപശാല മന്ത്രി രാവിലെ ഉദ്ഘാ ടനം ചെയ്യും

പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ അപകട ങ്ങൾക്കിരയായാൽ ഒരു ലക്ഷം രൂപ വരെ ധനസഹായം നൽകാൻ സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു

തൊഴിലാളി മരണപ്പെട്ടാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന ധനസ ഹായം പതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമായും വർദ്ധിപ്പിച്ചു

പി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കണ്ണൂരിൽ ബി

പിയുടെ ഗാന്ധി സങ്കൽപ് യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്യ സമര സേനാനിയും പ്രമുഖ ഗാന്ധിയനുമായി വി

അപ്പുക്കുട്ടപൊതുവാൾ കുമ്മനം രാജശേഖരന് പതാക കൈമാറി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ൾൾ കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം ഇന്ന് സമാപിക്കും സന്ധ്യയ്ക്ക് ദീപാരാധന വേളയിൽ ആൽത്തറകളിലെ കൽവിളക്കുകളിൽ തെളിയുന്ന പന്ത്രണ്ട് വിളക്ക് ദർശിക്കാൻ ആയിരക്കണക്കിന് പേർ എത്തും പടനിലത്തെ ഭജനം പാർക്കലിനും പന്ത്രണ്ട് വിളക്കോടെ സമാപനമാകും

ഓരോ സ്കൂളി ലെയും സീനിയർ അധ്യാപകന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കോർണറിൽ മരുന്നുകൾ അടിയന്തര സാഹചരൃങ്ങൾ കൈകാരൃം ചെയ്യുന്നതിന് സഹായിക്കുന്ന പാംലറ്റുകൾ ബ്രോഷറു കൾ എന്നിവ ഒരുക്കും ജില്ലാ കലക്ടർ ഡോ അദീല അബ്ദുള്ള വിളിച്ചു ചേർത്ത ജില്ലയിലെ പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് തീരുമാനം

ഇരു ടീമുകളും രണ്ടു ഗോൾ വീതം നേടി